വയനാട്ടിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകരുതെന്ന് മുസ്തീംലീഗ്

തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ഥി പ്പിജിൽ ആപ്പിന് മികച്ച പ്രതികരണം

തൊടുപുഴയിൽ അമ്മിയുടെ സുഹൃത്തിന്റെ ന് ക്രൂരപീഡനത്തിന്റ് ഇരയായ ഏഴു വയസുകാരന്റെ നില അതീവ ഗുരുതർമായി തുടരുന്നു

വൈദ്യുതി ഉപഭോഗം കുത്തനെ ഉയർന്നു വൈദ്യുതി മുടങ്ങില്ലെന്ന് കെ എസ് ഇ ബി

സ്കൂളുകൾ മധൃവേനലവധിക്ക് അടച്ചു

എഫ് സ്ഥാനാർത്ഥി പി

മണ്ഡലത്തിൽ മൂന്നാംഘട്ട പ്രചരണത്തിന്റെ തയ്യാറെടുപ്പിലാണ് എൽ ഡി

കാസർകോട് മണ്ഡലത്തിലെ എൽ

എഫ് സ്ഥാനാർത്ഥി കെ

കോഴിക്കോട് യു

ഫ് സ്ഥാനാർത്ഥി എം

നേതാക്കളുടെ സാന്നിധ്യത്തിലെത്തീ പത്രിക തിരുവനന്തപുരം ആറ്റിങ്ങൽ മുണ്ഡലങ്ങളിലെ എൽ

എഫ് സ്ഥാനാർത്ഥികളായ സി

തിരുവന്ന്തപ്പുരത്തെ യു

എറണാകുളത്തെ എൽ

സ്ഥാനാർത്ഥി പി രാജീവും ഇന്ന് പത്രിക സമർപ്പിച്ചു

തീരുമാനം ഇനി വൈകരുതെന്ന് മുസ്തീംലീഗ് നേതാവ് പി

കുഞ്ഞാലിക്കുട്ടി പാണക്കാട് ചേർന്ന അടിയന്തിരയോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു

ഒന്നാം ഘട്ട പരിശോധന കഴിഞ്ഞ് കരിക്കോട് വെയർഹൌസിംഗ് കോർപറേഷൻ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്നവയാണ് കൈമാറുക നിയോജക മണ്ഡലങ്ങളിലേക്കും ആവശ്യമായ മെഷീനുകൾ ചുമതലയുള്ള റിട്ടേണിംഗ് ഓഫീസർമാർക്ക് നൽകും സി വിജിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റചട്ട ലംഘന്നത്ത്ക്കുറിച്ച് പൊതുജന ങ്ങൾക്ക് പരാതിപ്പെടാനായി ആര്ഭിച്ച് സി വിജിൽ ആപ്പിന് വൻ ജന പിന്തുണയാണ് ലഭിച്ചുവരുന്നത്

ഏറ്റവും കുറവ് വയനാടാണ്

അനുമതിയില്ലാതെ പോസ്റ്ററുകളും ബോർഡുകളും സ്ഥാപിച്ചതിനാണ് ഭൂരിഭാഗം പരാതികളും ലഭിച്ചത് പണവും മദ്യവും നൽകി സ്ഥാധീനിക്കാൻ ശ്രമിച്ചതായി ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ല മീഡിയ സെൽ ലോക്സഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാദ്ധ്യമ വാർത്തകൾ പരിശോധിക്കാനുള്ള മീഡിയ മോണിറ്ററിംഗ് സെൽ തിരുവനന്ത പുരം കളക്ടറേറ്റിൽ പ്രവർത്തിപ്പിച്ചു വരുന്നു

എല്ലാ ദിവസവും റിപ്പോർട്ട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന് കൈമാറും ഈ റിപ്പോർട്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മീഡിയ സർട്ടിഫി ക്കേഷൻ ആന്റ് മോണിറ്ററിംഗ് കമ്മിറ്റി പരിശോധിച്ച് നടപടി സ്വീകരിക്കും

പ്രവൻറിലേറ്ററിലുള്ള കുട്ടിയുടെ ജീവൻ നിലനിർത്താനുള്ള കഠിനശ്രമത്തിലാണ് ഡോക്ടർമാർ കേസിൽ അറസ്റ്റിലായും തിരുവനന്തപുരം കവടിയാർ സ്വദേശി അരുൺ ആനന്ദിനെ ഇ്ന്ന് കോടതിയിൽ ഹാജരാക്കും കുട്ടി പീഡനത്തിന് ഇരയായ കുമാരമംഗലത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും കുട്ടിയുടെ അമ്മ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്

തിരുവന്തപുരം റജിസ്ട്രേഷനിലുള്ള കാർ അരുൺ ആനന്ദിന്റയും യുവതിയുടെയും പേരിലുള്ളതാണ് കാറിപ്പോൾ തൊടുപുഴ പൊലീസ് സ്റ്റേഷനിലാണ് ഫോറൻസിക് സംഘം ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു

ജലന്ദർ രൂപതയിലെ വൈദികനായ ആന്റണി മാടശ്ശേരിയെ ജലന്ദറിലെ പ്രതാപ് പുരിയിലെ വസതിയിൽ നിന്നാണ് എൻഫോഴ്സ്മെന്റ് പിടി കൂടിയത്

എന്നാൽ മതിയായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും സംസ്ഥാനത്ത് വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകില്ലെന്നും കെ

ബി ചെയർമാൻ എൻ

പിള്ള അറിയിച്ചു

മുസ്തീം കലണ്ടറിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ ജൂൺ ആറിനാണ് തുറക്കുക

സ്കൂളുകളിൽ അവധിക്കാലത്ത് ക്ലാസ് നടത്തുന്നിന് വിലക്കുണ്ട്

എസ് എൽ സി ഫലം മേയ് ആദ്യവാരത്തിലും ഹയർസെക്കൻ്ററി ഫലം രണ്ടാം വാരത്തിലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ

കനത്ത ചൂടിന്റെ പശ്ചാത്തലത്തിൽ കുട്ടി കളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ ആവശ്യമാണ്

പതിനഞ്ചോളം പേർക്ക് ഇന്നലെ ജില്ലയിൽ സൂര്യാതാപം ഏറ്റിരുന്നു

വീടുകളുടെ മേൽക്കൂരയിൽ സോളാർ പാനൽ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നതാണ് പദ്ധതി

തെരെഞ്ഞെടുപ്പ് പെരുമാറ്റചട്ട ലംഘനം നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി

രാത്രി ട്ട്

ആളിയാർ തടയണകളിൽ സംഭരിക്കാൻ ജലം കഴിഞ്ഞതോടെയാണ് വെള്ളം തുറക്കാനുള്ള തീരുമാനം മാറ്റിയത് കലോത്സവം കലയുടെ വിസ്മയങ്ങൾ സമ്മാനിച്ച കേരള സർവ്വകലാശാല യുവജനോത്സവം ഇന്ന് സമാപിക്കും അഞ്ച് ദിവസങ്ങളിലായി നടന്ന കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ കോളേജിനുള്ള ഓവറോൾ കിരീടവും മുഖ്യമന്ത്രി സമ്മാനിക്കും യൂണിവേഴ്സിറ്റി കോളേജും മാർ ഇവാനിയോസ് കോളേജും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാഴ്ച വച്ചത്

ടി ചരക്കു സേവന നികുതിയിൽ വരുത്തിയ മാറ്റങ്ങൾ നാളെ അർദ്ധരാത്രിമുതൽ നിലവിൽ വരും

ടി യിൽ വരുത്തിയി ് ഇളവുകളും നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും

കണ്ണൂരിലേക്ക് മൂന്ന് പ്രതിദിന സർവ്വീസുണ്ടാകും

ആഭ്യന്തര സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും നാലാഴ്ച യ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്